കൊച്ചി നാവിക ആസ്ഥാനത്തു നിന്നും പ്രത്യേക വിമാന സർവ്വീസുകൾ ആരംഭിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു

ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഷൂട്ടിംഗിൽ ഇന്ന് വെള്ളി നേട്ടം

ബംഗളൂരുവിൽ നിന്നുള്ള വിമാനം രാവിലെ കൊച്ചിയിലെത്തി കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

ഏഴ് ലക്ഷത്തോളം പേരെ മാറ്റിപാർപ്പിച്ചു പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ആലപ്പൂഴയിലും ചെങ്ങന്നൂരും വിവിധയിടങ്ങളിൽ കൂടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു കേരളത്തിൽ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്നും റിപ്പോർട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്

പകർച്ചവ്യൂാധി പ്രതിരോധിക്കാനായി ഓരോ പഞ്ചായത്തിലും മെഡിക്കൽ ഓഫീസർമാരെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാളെ വൈകുന്നേരം നാലിന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം രക്ഷാപ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും ഇനി ദുരിതാശ്വാസ പ്രവർത്തനത്തിനാണ് മുൻതൂക്കമെന്നും മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത് സംബന്ധിച്ച ചർച്ചകളും യോഗത്തിലുണ്ടാകുമെന്നാണ് വിവരം

ഇന്ത്യൻ സൈനൃവും കർണ്ണാടക സിവിൽ ഡിഫൻസ് വോളണ്ടിയേർസും സംയോജിച്ച് സോംവാർ പേട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ബാധിച്ചു ജോധ്പാലയിൽ ഇന്നലെ മന്ത്രിമാരായ ആർ വി ദേശ്പാണ്ഡെപ്പിയു ടി ഖാദർ എന്നിവർ സന്ദർശിച്ചു

ന്യൂഡൽഹിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നാലിനാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്

ലക്നൌവിലെ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വാജ്പേയിയുടെ ബന്ധുക്കളും പങ്കെടുക്കും

രാജീവ്ഗാന്ധി രാജ്യത്തിന് ചെയ്ത സേവനങ്ങൾ പ്രധാനമന്ത്രി ടിറ്ററിലൂടെ അനുസ്മരിച്ചു

രാജ്യരക്ഷാമന്ത്രി നിർമ്മല സീതാരാമസൂമിറ്റി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും സൈനിക ഉഭ്യക്ക്ഷി സഹകരണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും കൊറിയൻ ഉപമേഖലകളിലെ വിഷയങ്ങള്ളുടി ചർച്ചകളിൽ ഉൾപ്പെടുത്തുമെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു

എ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾ സാമ്പത്തിക മേഖലയെ അസ്ഥിരപ്പെടുത്തിയെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സാമ്പത്തിക അച്ചടക്കം നഷ്ടമായ കാലഘട്ടമായിരുന്നു യു

അതിന്റെ ഫലമായി ബാങ്കുകൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങി

വിക്ഷേപണത്തറയിൽ നിന്നും അനായാസം മിസൈൽ വിക്ഷേപിക്കാൻ സാധിച്ചതായി പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

തദ്ദേശീയമായി വികസിപ്പിച്ച സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പണിന്റെ പരീക്ഷണ പറക്കലും ജെയ്സാൽമറിലെ ചന്ദൻ മേഖലയിൽ വിജയകരമായി നടന്നു

ഉപദേശകരുമടങ്ങുന്നതാണ് മന്ത്രിസഭ പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് പാർട്ടി വൈസ് ചെയർമാൻ മഖ്ദൂം ഷാ മെഹമൂദ് ഖുറേഷി പാകിസ്ഥാന്റെ പുതിയ വിദേശാകാര്യമന്ത്രിയാകും ധനകാര്യവകുപ്പ് ആസാദ് ഉമറിനാണ്

അറഫ സംഗമവും ഇന്ന് നടക്കും അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഹജ്ജ് തീർത്ഥാടനം ഇന്നലെയാണ് ആരംഭിച്ചത്

ഇതോടെ ജക്കാർത്ത ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഒരു സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും ഉൾപ്പെടെ മൂന്ന് മെഡലുകളായി ഇന്തൃയുടെ മറ്റൊരു താരം രവികുമാർ നാലാം സ്ഥാനത്തായി രാവിലെ ആരംഭിച്ച വനിതാ ബാഡ്മിന്റൺ ടീം ഇനത്തിൽ പിവി സിന്ധു ഇന്ത്യയ്ക്കായി വിജയത്തോടെ തുടക്കമിട്ടു

ശൂഭാപ്തി വിശ്വാസം സുതാര്യമായ നയങ്ങൾ ജനതയെ സമൻമാരായി ഒരേ മനസ്സോടെ മുന്നോട്ട് നയിക്കുക എന്നിവയാണ് ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് അനിവാരൃമായ ഘടകങ്ങളെന്ന് അദ്ദേഹം മോൺട്രിയാലിൽ പറഞ്ഞു പാവപ്പെട്ടവരും ധനികരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുകയും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനായി സദാ പ്രയത്നിക്കുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ഉറപ്പുനൽകി

പ്യോഗ്യാങ് ആണവ മിസൈൽ പരീക്ഷണങ്ങൾ നിർത്തിവച്ചതിന്റെ തുടർച്ചയായി ഇരു കൊറിയൻ രാജ്യങ്ങളും പരസ്പര സഹകരണം പുതുക്കിയതിന്റെ തുടർച്ചയായണ് സംഗമം നടക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ ചേർന്ന ഉച്ചകോടിയിലാണ് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജേയും ഒത്തുചേരൽ ഉടമ്പടിക്ക് അംഗീകാരം നൽകിയത് ഉത്തരകൊറിയയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ മൌണ്ട് കുംഗാങ്ങിലാണ് കുടുംബങ്ങളുടെ സംഗമം ഒരുക്കിയിട്ടുള്ളത്

വാഹനത്തിൽ വന്ന അക്രമികൾ എംബസിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല ടർക്കിയിൽ അമേരിക്കൻ പുരോഹിതന്റെ വിചാരണ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആക്രമണം

ഈദ് അൽ അദാ അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി എന്ന് അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഘാനി പറഞ്ഞു കലാപകാരികൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും താൽക്കാലിക യുദ്ധവിരാമം എന്നും അഷ്റഫ്ഘാനി അഭിപ്രായപ്പെട്ടു

അന്ന്വരെ വെടിനിർത്തിൽ നിയന്ത്രണം ഉണ്ടാകും

എ ഇ നാടുകടത്തി ഇർഫാൻ അഹമ്മദ് സർഗറിനെയാണ് നാടുകടത്തിയത് കഴിഞ്ഞവർഷം കശ്മീരിലെ ഗന്ദർബാൾ സ്വദേശി അസ്ഗർ ഉൾ ഇസ്കാമിനെയും സമാന കുറ്റത്തിന് നാടുകടത്തി